പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമങ്ങൾ അപലപനീയ്മെന്നും പ്രധാനമന്ത്രി

ഒഴിവാക്കുന്നത്തിനായി അഞ്ചിന വൃവസ്ഥകൾ അടിസ്ഥാനമാക്കി കമാൻഡർ തല ചർച്ച പുരോഗമിക്കുന്നു

സ്ഥിരീകരിച്ചു

റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

വഴിതെളിക്കുമെന്നും കർഷകരെ സേവിക്കാനും ഭാവിതലമുറയ്ക്ക് വേണ്ടി ശക്തമായ കാർഷിക വ്യാവസായിക മേഖല സൃഷ്ടിക്കാനുമാണ് കേന്ദ്രം ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകർക്ക് ഉറപ്പുനൽകി കാർഷിക വൃവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നുതന സാങ്കേതികവിദ്യ അനിവാര്യമായി തീർന്നിരിക്കുകയാണെന്നും പുതിയ നിയമങ്ങൾ പ്രാബലൃത്തിൽ വരുന്നതോടെ ഭാവിയിലേക്കുള്ള സങ്കേതികവിദ്യ എളുപ്പത്തിൽ പ്രാപ്തമാകുകയും ഉല്പാദനം വർധിക്കുകയും ചെയ്യുമെന്നും കാർഷികമേഖലയിൽ ഇടനിലക്കാർ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ദശാബ്ദങ്ങളായി രാജ്യത്തെ കർഷകരെ ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നതായും അറിയിച്ചു കുറഞ്ഞ് താങ്ങുവില സമ്പ്രദായവും കാർഷികോൽപന്നങ്ങൾ സർക്കാർ വാങ്ങുന്ന രീതിയും യാതൊരു തടസ്സവുമില്ലാതെ ഇനിയും തുടരുമെന്നും പുതിയ നിയമങ്ങൾ ഇതിനൊ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും പ്രധാനമന്ത്രി ഉറപ്പുനൽകി കാർഷികമേഖലയിൽ പരിവർത്തനം സൃഷ്ടിക്കുന്നതിനും കർഷകർക്ക് മെച്ചപ്പെട്ട ജീവിതം പ്രദാനം ചെയ്യുന്നതിനും ആണ് പുതിയ കാർഷിക നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

ബിഹാറിൽ വിവിധം വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്നതിലൂടെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ശാക്തീകരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു

എം അംഗങ്ങളായ എളമരം കരീം കെ

കേന്ദ്ര പാർലമെന്ററികാര്യ സഹമന്ത്രി വി

പിമാരെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി വി

വസ്തുതകളെ വളച്ചൊടിച്ച് സത്യത്തിന്റെ മുഖം വികൃതമാക്കാനുള്ള ശ്രമങ്ങളാണ് സസ്പെൻഷനിലായ എം പി മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് അവരുടെ ഉത്പന്നങ്ങൾ കൂടുതൽ വില കിട്ടുന്നിടത്ത് വിൽക്കാനുള്ള അവസരമാണ് നിയമത്തിലൂടെ സംജാതമാകുന്നതെന്ന് മുർളീധരൻ കൂട്ടിച്ചേർത്തു

കിഴക്കൻ പ്രല്ഡാ്ക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപ്പം മോൾഡോയിലാണ് ചർച്ച യാഥാർത്ഥ നിയന്ത്രണം രേഖയ്ക്ക് സമീപമുള്ള സംഘർഷ മേഖലകളിൽ നിന്ന് ഖ്സെനിക പിൻമാറ്റത്തിന് ലക്ഷ്യമിടുന്ന അഞ്ചിന വൃവസ്ഥകൾ അടിസ്ഥാനമാക്കി നടക്കുന്ന ചർച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ നിർണായകമാണ് ആരംഭിച്ച ശേഷമുള്ള ആറാം വട്ട കമാൻഡർതല ചർച്ചയാണിത്

ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്

അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഖം രേഖപ്പെടുത്തി

എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല ്തിരിച്ചുള്ള കണക്കുകൾ

ഇന്ന് ഉച്ചയ്ക്ക് പൂഞ്ച് ജില്ലയിൽ ഷാപ്പൂർ കിർനി കസ്ബ മേഖലകളിലെ നിയന്ത്രണ രേഖയിൽ പ്രകോപനപരമായും വിവേചനരഹിതമായും പാക് സൈന്യം വെടിയുതിർത്തു

സമാധിസ്ഥലമായ ശിവഗിരിയിലെ ശാരദാമഠത്തിലും മഹാസമാധിയിലും പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകൾ നടന്നു കേരള സർക്കാർ തലസ്ഥാനത്ത് സ്ഥാപിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വെങ്കല പ്രതിമ സമാധി ദിനമായ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തു

ഐ

വാങ്ങാൻ സമർപ്പിച്ച അപേക്ഷയിലാണ് കസ്റ്റഡിയിൽ കുടുതൽ പേരെപിടികൂടാനുണ്ടെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്

എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും